സർദാർ വല്ലഭായ് പട്ടേൽ കോർത്ത ഐക്യമന്ത്രം എല്ലാ മേഖ ലകളിലും ബലപ്പെടുത്തണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു

രാമജന്മഭൂമിയുടെ കാര്യത്തിൽ തീരുമാനം വന്നപ്പോൾ അന്തരീക്ഷത്തിൽ സമ്മർദ്ദം കുറഞ്ഞുവെന്നും അന്നത്തെ ഐക്യത്തിന്റെ സ്വരം രാജ്യത്തിന് ശക്തി പകർന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ദീപാവലി നാളിൽ വനിതാശാക്തീകരണത്തിന് പ്രധാന മന്ത്രി ആദരമർപ്പിച്ചു സ്ത്രീശക്തിയിൽ നിന്ന് നാം പ്രചോദനം ഉൾക്കൊള്ളണം ഗുരുനാനാക് ദേവിന്റെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും ജീവിതവും പ്രവൃത്തിയും പ്രചോനദമേകുന്ന താണെന്ന് അദ്ദേഹം പറഞ്ഞു ലക്ഷദ്ധീപിനെ ഇന്ത്യയുടെ അവി ഭാജ്യ ഘടകമാക്കിയതിൽ സർദാർ പട്ടേൽ വഹിച്ച പങ്ക് നിസ്തുലമാണ് നമ്മുടെ അയൽരാജ്യത്തിന് ലക്ഷദ്ധീപിന് മേൽ കണ്ണുണ്ടായിരുന്നു എന്നാൽ പട്ടേൽ പെട്ടെന്നു നടത്തിയ നീക്കം അവരുടെ ആഗ്രഹം തകർത്തു കളഞ്ഞുവെന്ന് മോദി പറഞ്ഞു

ജാതി മതാടിസ്ഥാനത്തിൽ അദ്ദേഹം വൃത്യാസം കാണിച്ചില്ല

ഇന്ദിരാഗാന്ധിയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതായി നരേന്ദ്രമോദി പറഞ്ഞു രാജ്യത്തെ ജനങ്ങൾക്ക് ദീപാവലി ആശംസിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങിയതും അവസാനിപ്പിച്ചതും

ദീപാവലിയുടെ ശുഭാശംസകളോടൊപ്പം ഖാദിയുൾപ്പെടെ തദ്ദേശീയ സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്ക ണമെന്നും അപ്പോൾ രാഷ്ട്രപിതാവിന്റെ ആദർശങ്ങൾ ഫല പ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി പറ ഞ്ഞു

പടക്കം പൊട്ടിച്ചും ദീപങ്ങൾ തെളിയിച്ചും മധുരം വിതരണം ചെയ്തുമാണ് ദീപാ വലി ആഘോഷിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മുകശ്മീരിലെ രജൌരിയിൽ സൈനികരോടൊപ്പമാണ് ദീപാവലി ആഘോഷിക്കുന്നത് യു എ ഇ അടക്കം പ്രവാസ ലോകവും ദ്വീപാവലി ആഘോഷിക്കു ന്നുണ്ട്

ഇന്നലെ സിറിയയുടെ വടക്കു പടിഞ്ഞാറ് യു എസ് സ്പെഷ്യൽ ഓപ്പറേഷൻ കമാൻഡോകൾ നടത്തിയ ആക്രമണത്തിലാണ് ബാഗ്ദാദി മരിച്ചതെന്ന് യു എസ് മാധ്യ മങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഡി എൻ എ ബയോമെ ട്രിക് പരിശോധനകൾ നടത്തേണ്ടതിനാൽ ബാഗ്ദാദിയുടെ മരണത്തെക്കുറിച്ച് അന്തിമസ്ഥിരീകരണം വന്നിട്ടില്ലെന്ന് മുതിർന്ന യു എസ് പ്രതിരോധ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു അമേരിക്കൻ ആക്രമണത്തിനി ടയിൽ ബാഗ്ദാദി ആത്മഹത്യ ചെയ്തതാണെന്നും റിപ്പോർട്ടു ണ്ട്

ഒരു വലിയ സംഭവം നടന്നിട്ടുണ്ടെന്ന് ട്രംപ് നേരത്തെ ട്വീറ്റ് ചെയ്തിരുന്നു

ഏകാധിപത്യ രീതി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് രാജ്യത്ത് നടക്കുന്നത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ അടിത്തറ നാനാത്വത്തിൽ ഏകത്വമാണെന്ന് ശാസത്രീയമായി അവതരിപ്പിച്ച കമ്മ്യുണിസ്റ്റുകാരനായിരുന്നു എൻ

ബാലറാം എന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഇ ബാലറാം ജൻമശതാബ്ദിയോടനുബന്ധിച്ച് കണ്ണൂരിൽ നടന്ന ദേശീയ സെമിനാറിൽ ഭാരതീയ ദർശനങ്ങളുടെ ജനപക്ഷ സദസ്സ് ഉദ് ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി

ഭരണാധികാരികളെ വിമർശിക്കുമ്പോൾ ആ വിമർശനം ഉൾക്കൊള്ളാൻ കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്നവർ തയ്യാറാവുന്നില്ല

ഉപതിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് അഹങ്കാരം കൂടിയിരിക്കയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി

കണ്ണൂരിൽ എൻ

ഒ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചെന്നിത്തല സമ്മേളനം വൈകിട്ട് സമാപിക്കും

സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നിയുക്ത എം എൽ എ മാർക്ക് സ്ത്യവാചകം ചൊല്ലിക്കൊ ടുക്കും

രാവിലെ പുന്നപ്രയിൽ നിന്ന് വയലാറിലേക്ക് ദീപശിഖാ പ്രയാണം നടത്തി ഹരിയാനയിൽ മനോഹർലാൽ ഖട്ടറിന്റെ നേതൃത്വത്തിൽ ബി ജെ പി ജെ ജെ പി സഖ്യ മന്ത്രിസഭ ഉച്ചകഴിഞ്ഞ് അധികാ രമേൽക്കും

ജെ ജെ പി നേതാവ് ദുഷ്യന്ത് ചൌതാല ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും

സെമിഫൈനലിൽ ജപ്പാൻ സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ താരങ്ങൾ മുന്നേ റിയത്

മൂന്ന് തീയ്യതികളിൽ കോഴിക്കോട് ചെറുവണ്ണൂരിൽ നടക്കും ടൂർണമെന്റിൽവിജയികളാവുന്ന ടീമിന് ഒരു ലക്ഷം രൂപയും മിനിസ്റ്റേഴ്സ് ട്രോഫിയും സമ്മാനിക്കും

തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ചിത്തിര തിരുനാളിന്റെ ജന്മനാളെന്ന പ്രത്യേകതയിലാണ് ആട്ടവിശേഷം നടത്തുന്നത്

കലകലകലകലകലകലകല ജനാധിപത്യമഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം വൈകിട്ട് കോഴിക്കോട്ട് സമാപിക്കും പുതിയ ഭാരവാഹികളെ സമ്മേളനം തെരഞ്ഞെടുക്കും ബീച്ചിൽ നടത്താൻ നിശ്ചയിച്ച പോതുസമ്മേളനവും സമാപന റാലിയും പ്രതികൂല കാലാവസ്ഥ കാരണം മാറ്റിവെച്ചു

മുഖ്യ മന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ കേസിൽ കേരള പൊലീസിന്റെ അന്വേഷണം നീതിപൂർവ്വമായിരിക്കില്ല കൊലപാതക ഗൂഢാലോചന സി ബി ഐ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു കൊണ്ടുവരാൻ കഴിയൂ എന്നും കൊടിക്കുന്നിൽ പറഞ്ഞു

മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ലലലലലലലലലലലല കണ്ണൂർ വളപട്ടണം റെയിൽവെ ഗുഡ് ഷെഡ് മേഖലയിലെ തൊഴിൽ സ്തംഭനം അവസാനിപ്പി ക്കുന്നതിന് അടിയന്തിര നടപടി എടുക്കണമെന്ന് കേരള സ്റ്റേറ്റ് ഹെഡ് ലോഡ് ആൻറ് ജനറൽ വർക്കേർസ് ഫെസറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ

രാഘവൻ കണ്ണൂരിൽ ആവശ്യ പ്പെട്ടു

ഇതുസംബന്ധിച്ച് ജില്ലാ ലേബർ ഓഫീസർക്കും ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ചെയർമാനും നിവേദനം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു

വൈകിട്ട് അഞ്ചിന് മാഹി സ്പോർട്സ് ക്ലബ്ബ് ഓഡിറ്റോറിയ ത്തിലാണ് പരിപാടി വയനാട് മാനന്തവാടിയിലെ മത്സ്യ മാംസ വിൽപന സ്റ്റാളുകളിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധന നടത്തി

കാലാം ഇല്ലാതെ പ്രവർത്തിച്ച രണ്ട് മാംസ സ്റ്റാളുകൾക്കും നോട്ടീസ് നൽകി

ഒരു ലക്ഷംരൂപയുടെ നഷ്ടം കണക്കാക്കുന്നു നാദാപുരത്ത് നിന്നും എത്തിയ ഫയർ യൂണിറ്റാണ് തീയണച്ചത് ലലലലലലലലലലലലല താമരശ്ശേരി ചുരം റോഡിൽ ദേശീയപാത കൈയേറി നിർമ്മിച്ചു കെട്ടിടങ്ങളും പെട്ടിക്കടകളും ഒഴിപ്പിക്കാൻ അടുത്ത ആഴ്ച തന്നെ നടപടി ആരംഭിക്കാൻ ജില്ലാ വികസന സമിതി യോഗത്തിൽ കോഴിക്കോട് ജില്ലാകലക്ടർ സാംബശിവറാവു നിർദ്ദേശം നൽകി ജില്ലയിൽ വനംവകുപ്പ് ജെണ്ട കെട്ടുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരാതികൾ ഉള്ളിടത്തെല്ലാം റവന്യൂ വകുപ്പുമായി ചേർന്ന് സംയുക്ത സർവേ നടത്താൻ യോഗം തീരുമാനിച്ചു